വർധമാന്റെ മോചനത്തെ യു എൻ സെക്രട്ടറി ജനറൽ സ്വാഗതം ചെയ്തു

ആരവല്ലി മലനിരകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാനാകില്ലെന്ന് ഹരിയാനയോട് സുപ്രീംകോടതി

വിശദാംശങ്ങളുമായി തുളസീദാസ്

കൂടിവെള്ളം വൈദ്യുതി ഉജ്ജ്വല പാചക വാതക കണക്ഷൻ തുടങ്ങിയവ രാജ്യത്തെ എല്ലാ പൌരൻമാർക്കും ഉറപ്പാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം ഭവനനിർമാണവും ഭവന നിർമാണത്തിനാവശ്യമായ വസ്തുക്കളുടെ കൈമാറ്റവും ഇപ്പോൾ കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട് ഇതിനായി ഗവൺമെന്റ് നികുതി നിരക്കിൽ മാറ്റം വരുത്തിയിട്ടുള്ള കാര്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

ഇടത്തരക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്

അഞ്ച് ലക്ഷം രൂപവരെയുള്ള ആദായത്തിന് നികുതി ഒഴിവാക്കിയത് സുപ്രധാന നീക്കമാണെന്ന് പ്ര്യ്യാനമന്ത്രി പറഞ്ഞു

രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും കേന്ദ്രഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു വിശാഖപട്ടണത്ത് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ അഭിവൃദ്ധിക്ക് കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്നും ദക്ഷിണ തീര റെയിൽവേ സോൺ എന്ന ഏറെക്കാലമായുള്ള ആവശ്യം കേന്ദ്രം നിറവേറ്റിയതായും പ്രധാനമന്ത്രി പറഞ്ഞു

പഞ്ചാബിലെ അത്താരി വാഗ അതിർത്തി പ്രഹിയാണ് അഭിനന്ദനെ ഇന്ത്യയ്ക്ക് പാക് അധികൃതർ കൈമാറിയത് പ അഭിനന്ദിനെ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പാകിസ്ഥാൻ കൈമാറിയതെന്ന് വ്യോമസേന വൈസ് മാർഷൽ ആർ

അഭിനന്ദൻ തിരിച്ചെത്തിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അഭിനന്ദനെ രാജ്യത്തേക്ക് തിരികെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹത്തിന്റെ ധീരതയിൽ രാജ്യം അഭിമാനം കൊള്ളുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

നിയമത്തിൽ ഭേദഗതി വരുത്തി നിർമ്മാണ പ്രവർത്തനം നടത്താൻ അനുമതി നൽകിയ ഹരിയാന ഗവൺമെന്റ് തീരുമാനത്തെ കോടതി വിമർശിച്ചു നിർമ്മാണ പ്രവർത്തനം പ്രദേശത്തെ വനനശീകരണത്തിന് കാരണമാകുമെന്നും കോടതി നിരീക്ഷിച്ചു

ഇത് സംബന്ധിച്ച ഉത്തരവ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്നലെ പുറപ്പെടുവിച്ചു

പൊതുവിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണമാണ് അനുവദിക്കുന്നത്

ഗുവാഹത്തിയിൽ ഓയിൽ മ്യൂസിയം സ്ഥാപിക്കുമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു

കാർഗിൽ യുദ്ധത്തിൽ അതിവിശിഷ്ട സേവനമാണ് നമ്പ്യാർ കാഴ്ച വച്ചത്

യുദ്ധവിമാനമായ മിറാഷ് കൂടുതൽ സമയം പറത്തിയ റെക്കോഡിന്റെ ഉടമ കൂടിയാണ് രഘുനാഥ് നമ്പ്യാർ

രണ്ട് വർഷത്തിനുള്ളിൽ നിർമാണം പൂർത്തിയാക്കുമെന്നും ശ്രീ ഗഡ്കരി അറിയിച്ചു

സമൂഹ മാധ്യമം വഴി കുറ്റകൃതൃങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വിവരം കൈമാറാനും ധാരണയായി കേരളത്തിലെ സൈബർ ഡോമിന്റെ പ്രർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ എത്തിയ ദുബായ് പോലീസ് സംഘം ഡോമിന്റെ സഹകരണം ആവശ്യപ്പെട്ടു ദുബായ് പോലീസ് ബ്രിഗേഡിയർ ഖാലിദ് അൽ റസൂഖിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് കേരളത്തിലെത്തിയത് സൈബർ സുരക്ഷ നിർമ്മിത ബുദ്ധി സൈബർ ക്രൈം സോഫ്റ്റ് വെയർ എന്നിവയിലാണ് കേരള പോലീസിന്റെ സഹകരണം ആവശ്യപ്പെട്ടത്

തീപിടിത്തത്തെ തുടർന്നാണ് പ്ലാന്റ് അടച്ചിട്ടിരുന്നത് പ്ലാന്റിൽ സുരക്ഷ കർശനമാക്കുമെന്ന് ജില്ലകൃളൂക്ട്ടർ ്അറിയിച്ചു കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയമിച്ചു പ്ലാന്റിന്റ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും

പാക് പ്രകോപനത്തിന് ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടിയാണ് നൽകിയത് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ഇന്നലെ ജമ്മു കാശ്മീരിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ കൊല്ലപ്പെട്ടു പൂഞ്ച് ജില്ലയിലെ അതിർത്തി ഗ്രാമമായ സോലാത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ കനത്ത ഷെല്ലാക്രമണത്തിലാണ് മൂന്ന് പേരും കൊല്ലപ്പെട്ടത് പാക് പ്രകോപനത്തെ തുടർന്ന് ജുലാസ സോലാത്രി ഭേര എന്നിവിടങ്ങളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയാണ്

അഞ്ച് കളികളുള്ള പരമ്പരയിലെ ആദ്യമത്സരം ഹൈദരാബാദിൽ നടക്കും

ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന ഏകദിനമായാണ് മത്സരത്തെ കണക്കാക്കുന്നത് മേയിലാണ് ഏകദീന ലോകകപ്പ് മത്സരം ലോക റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്തിുള്ള് ഓസ്ട്രേലിയ ഇന്തൃയ്ക്കെതിരെ ശക്തമായ പോരാട്ടം മുന്നിൽ കണ്ടാണ് ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങുക

ഇന്നലെയാണ് മുംബൈയിൽ ഇവരുടെ അഞ്ചിൽപ്പരം ഓഫീസുകളിലും വീടുകളിലും തെരച്ചിൽ നടന്നത്

വിവിധ വികസന പദ്ധതികൾ ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും വിശ്വ ഉമിയാധാം ക്ഷേത്ര സമുച്ചയത്തിന് അദ്ദേഹം ശിലാസ്ഥാപനം നടത്തും

വെനിൻസുലയുടെ ദേശീയ സുരക്ഷാ കമാന്ററടക്കം ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വാഷിംഗ്ടൺ വ്യക്തമാക്കി ഇവർടെ അമേരിക്കയിലെ ആസ്തികൾ മരവിപ്പിക്കാനും തീരുമിന്ന്മാ്യിട്ടുണ്ട്

ഇയാളുടെ സ്വത്തുക്കളും സാമ്പത്തിക സ്രോതസുകളും മരവിപ്പിക്കാനും തീരുമാനമുണ്ട്